കേരളത്തിൽ വ്യാഴാഴ്ച മുതൽ കനത്ത മഴക്കും കാറ്റിനും സാധൃതയെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ ഞായറാഴ്ച റെഡ് അലർട്ട്

രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ഫ്രാൻസെസ് എച്ച് ആർണോൾഡ് ജോർജ് പി സ്മിത്ത് ഗ്രിഗറി പി വിന്റർ എന്നിവർക്ക്

യു എൻ സെക്രട്ടറി ജനറലിൽ നിന്ന് ന്യൂഡൽഹിയിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി കൂടുതൽ വിവരങ്ങളുമായി ഷീല ഷാജിമോൻ ഇത് ആദിവാസികൾക്കും മൃത്സ്യതൊഴിലാളികൾക്കും അംഗീകാരമാണ്

ഇതിൽ രാഷ്ട്രീയ നേതൃത്വ വിഭാഗത്തിൽ നിന്നുമാണ് ശ്രീ

കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിനായുള്ളൂ ഗ്വ്ൺമെന്റിന്റെ നടപടികളുടെ ഭാഗമാണ് തീരുമാനമെന്ന് കേന്ദ്രമിന്തി ർവിശങ്കർ പ്രസാദ് പറഞ്ഞു

ഒരു വാർത്താ ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അവർ

റഫേൽ ഇടപാടിൽ വളരെയധികം ഗുണങ്ങൾ ഉള്ളതായി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു

വിമാനങ്ങളുടെ എണ്ണം കുറച്ചതിൽ വ്യോമസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം തേടിയിട്ടു ് എന്നാൽ അവസാന തെരഞ്ഞെടുപ്പ് നടത്തേ ത് ഗവൺമെന്റ് ആണെന്നും ശ്രീ ധനോവ പറഞ്ഞു

ജെ

രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചീഫ് ജസ്റ്റിസ്ക് ദീപക് മിശ്ര വിരമിച്ച ഒഴിവിലാണ് നിയമനം പതിമൂന്ന് മാസം വരെ അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരും

സമുദ്രമൈത്രി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള സഹായദൌത്യം ആരംഭിച്ചു

അഗ്നി പർവ്വത പ്രദേശൃത്ത് നീന്ന് നാലു കിലോമീറ്റർ എങ്കിലും ഒഴിഞ്ഞ് നിൽക്കാൻ ദുര്യ്ക്ക് നിവാരണ ഏജൻസി ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേന ഇന്തോനേഷ്യയിൽ സമുദ്രമൈത്രി എന്ന പേരിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടു ്

നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോകോ വിദോദോയെ ഫോണിൽ ബന്ധപ്പെട്ട് സാധ്യമായ എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അതീവ് തീവ്രമഴക്ക് സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു ഞായറാഴ്ച കനത്ത മഴക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി പാലക്കാട് തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ആകെ ജാഗ്രതാ നിർദ്ദേശം അഞ്ച് മുതൽ ഏഴു വരെ മിക്ക ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടു ് ഇടുക്കിയിൽ നാല് മുതൽ ആറ് വരെ തീയതികളിലും തൃശൂരും പാലക്കാടും ആറിനും പത്തനംതിട്ടയിൽ ഏഴിനും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു

എന്നാൽ യഥാർത്ഥനഷ്ട്ടര് കണക്കാക്കിയതിലും വളരെ വലുതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വ്യവസായ കച്ചവട മേഖലകളുടെ നഷ്ടര ക്ണക്കിൽ വന്നിട്ടില്ല ലോകബാങ്കിന്റെ റിപ്പോർട്ടു കൂടി ഉൾപ്പെടുത്തി പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് നിവേദനം നൽകും

ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു

അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ എതിർപ്പ് മറികടന്നാണ് എക്സൈസ് ബ്രൂവറി വസ്തുതാവിരുദ്ധമാണെങ്കിൽ അനുവദിച്ചത് ഇത് വൃക്തമാക്കണമെന്നും അല്ലെങ്കിൽ എക്സൈസ് മന്ത്രി രാജിവയ്ക്കണമെന്നും ശ്രീ ചെന്നിത്തല ആവശ്യപ്പെട്ടു

ഫ്രാൻസെസ് എച്ച് ആർണോൾഡ് ജോർജ് പി സ്മിത്ത് ഗ്രിഗറി പി വിന്റർ എന്നിവരാണ് പുരസ്കാരത്തിനർഹരായവർ

സമാനമായ പഠനമാണ് ബ്രിട്ടീഷുകാരനായ ഗ്രിഗറി വിന്ററും നടത്തിയത്

അർണോൾഡിനും ബാക്കി പകുതി ഡോ

കൂടി പങ്കിടുമെന്നും അക്കാദമി രാസപ്രതിപ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പ്രോട്ടീനുകളേയും എൻസൈമുകളുടേയും പരിണാമമാണ് ഡോ

വിന്റർ കാൻസറിനെ പ്രതിരോധിക്കാനുള്ള മരുന്നിനെ കുറിച്ചുള്ള പഠനമാണ് ലോകത്തിന് സമ്മാനിച്ചത്